ചരക്കുസേവന നികുതിയിൽ വൈകാതെ കൂടുതൽ ഇളവുകൾ ഉണ്ടാ യേക്കുമെന്നും പ്രധാനമന്ത്രി മുഴുവൻ കാർഷിക വായ്പകളും എഴുതിതള്ളുന്നതുവരെ പ്രധാനമ

ആയാസരഹിത ജീവിതവും വ്യാപാര സാഹചര്യങ്ങളും ഉറപ്പാക്കു ന്നതിനാണ് കേന്ദ്രം മുന്തിയ പരിഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി ആവർത്തിച്ചു വൃക്തമാക്കി അടിസ്ഥാന മേഖലയിലെ വിക സനത്തിന് ഊന്നൽ കൊടുത്താണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്ന ത് നാലാം വ്യവസായ വിപ്ലവത്തിന് ആവശ്യമായ അടിസ്ഥാന സൌകര്യ ങ്ങൾ രാജ്യത്ത് ഇപ്പോഴേ ലഭ്യമാണെന്ന് പ്രധാനമന്ത്രി പൂനെയിൽ പറഞ്ഞു പൂനെ മെട്രോയുടെ മൂന്നാം പാതയ്ക്ക് തറക്കല്ലിടുകയായിരുന്നു പ്രധാന മന്ത്രി

മുഴുവൻ കാർഷിക വായ്പകളും എഴുതി തള്ളുന്നതുവരെ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ നേതാക്കളും പ്രധാനമന്ത്രിയെ ഉറങ്ങാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പറഞ്ഞു

ഇതിനായി കെഎസ്ആർടിസി മേഖലാ ഓഫീസർമാരുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് വൈകീട്ട് ചർച്ച നടത്തും അഡ്രൈസ് മെമ്മോ ലഭിച്ച മുഴുവൻ പേരോടും നാളെ ജോലിക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്

അതിനിടെ പിരിച്ചുവിട്ട നടപടിക്ക് എതിരെ എംപാനൽ ജീവനക്കാരുടെ ലോംഗ് മാർച്ച് ഇന്ന് ആരംഭിക്കും വൈകീട്ട് ആലപ്പുഴയിൽ നിന്ന് തുടങ്ങുന്ന മാർച്ച് തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിക്കും

ഇതിനായി ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിക്കുന്നില്ലെന്നും സത്യവാങ്മൂലത്തിൽ അറി യിച്ചു വനിതാമതിലിന് നിർബന്ധിത സ്വഭാവമുണ്ടെന്നാരോപിച്ച് വിവരാ വകാശ പ്രവർത്തകൻ ഡി

ബിനു നൽകിയ ഹർജിയിലാണ് ഗവൺമെന്റിന്റെ വിശദീകരണം ഹർജി നാളെ വീണ്ടും പരിഗണിക്കും വനിതാമതിലിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒന്നരലക്ഷം പേർ പങ്കെടുക്കുമെന്ന് മന്ത്രി എ

വനിതാമതിൽ സംഘാ ടക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു

വനിതാമതി ലിൽ അണിചേരാൻ ആരെയും നിർബന്ധിക്കില്ലെന്നും ആശ്യ പ്രചരണം മാത്രമാണ് ഗവൺമെന്റ് നടത്തുന്നതെന്നും മന്ത്രി പാലക്കാട്ട് വ്യക്തമാക്കി

വനിതാമതിലിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് പത്തനംതിട്ട ജില്ലാ കല്ക്ടർ നൽകിയ ഉത്തരവ് പിൻവലി ക്കണമെന്ന് ജില്ലാ യു ഡി എഫ് കൺവീനർ പന്തളം സുധാകരൻ പത്തനം തിട്ടയിൽ ആവശ്യപ്പെട്ടു സമൂഹത്തിൽ ചേരിതിരിവ് ഉണ്ടാക്കുന്ന വർഗീയ മതിൽ തീർക്കാൻ ഗവൺമെന്റ് സംവിധാനം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹ മാണെന്ന് സുധാകരൻ പറഞ്ഞു വനിതാമതിലിന്റെ പ്രചരണാർത്ഥം മറ്റന്നാൾ കോഴിക്കോട്ട് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ വനിതാ കൂട്ടയോട്ടം സംഘ ടിപ്പിക്കുന്നു വൈകിട്ട് നാലിന് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് കിഡ്സൺകോർണർ വരെയായിരിക്കും കൂട്ടയോട്ടം

ഉപഗ്രഹത്തിന് രണ്ടേകാൽ ടണ്ണാണ് ഭാരം തന്ത്രപരമായ പല മേഖലകളിലും ഹൈടെക് വാർത്താവിനിമയത്തിന് ഉപഗ്രഹം വഴിയൊരു ക്കും

ഡ്രൈവിംഗ് ലൈസൻസിനും സ്വീകാര്യത നൽകണമെന്ന് കേന്ദ്ര ഗതാ ഗത മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി മൊബൈൽ ആപ്തി ക്കേഷനുകളായ ഡിജിലോക്കർ എം പരിവഹൻ എന്നിവയിലെ രജിസ്ട്രേ ഷൻ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റുകൾ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ആധികാരിക രേഖകളായി പരിഗണിക്കാനാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട നിരോധനാജ്ഞ നാല് ദിവസത്തേക്ക് കൂടി നീട്ടി പത്തനംതിട്ട ജില്ലാ കലക്ടർ പി

ഇലവുങ്കൽ മുതൽ ശബരിമല സന്നിധാനം വർ പ്രഖ്യാപിച്ചിരുന്ന നിരോധനാജ്ഞ ഇന്നലെ രാത്രി അവസാനിക്കാനിരിക്കെയാണ് വീണ്ടും നീട്ടി യത്

രണ്ടാഴ്ചയ്ക്കകം ഇതിന് ഉത്തരവിറക്കുമെന്ന് കേന്ദ്രമന്ത്രി ജെ

നദ്ദ അറി യിച്ചതായി അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് സി ജി എച്ച് എസ് ആശുപത്രി പ്രവർത്തിക്കുന്നത്

തലശ്ശേരിയിൽ സി

നായിഡു ട്രോഫി ക്രിക്കറ്റിൽ ഹിമാചൽ പ്രദേശിനെതിരെ കേരളത്തിന് തോൽവി മൂന്ന് വിക്കറ്റിനാണ് ഹിമാചലിന്റെ ജയം

കളും ഉടൻ പൂർത്തിയാക്കണമെന്ന് മന്ത്രി കെ

ജില്ലയിലെ ജലവകുപ്പ് പ്രവർത്തന പുരോഗതി അവലോകന യോഗ ത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനും പുഴസംരക്ഷണത്തിനും പ്രാധാന്യം നൽകി നടപടികൾ വേഗ ത്തിലാക്കാനും മന്ത്രി നിർദ്ദേശിച്ചു അട്ടപ്പാടിയിലെ സമഗ്ര കുടിവെള്ള പദ്ധതി പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നും ശിരുവാണി ഡാമിൽ നിന്നും തമിഴ്നാടിന് കൃത്യമായി അളന്ന് വെള്ളം നൽകാൻ സംവിധാനമു ണ്ടാക്കണമെന്നും യോഗത്തിൽ മന്ത്രി എ

ബാലൻ ആവശ്യപ്പെട്ടു ് പൊന്മുടിയെ ലോകനിലവാരത്തിൽ വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്താൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയി ച്ചു പൊന്മുടിയിൽ കെ ടി

പലിശരഹിത വായ്പ ലഭ്യമാക്കാൻ ഉടൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി വി

എറണാകുളം തിരുവാണിയൂരിൽ പ്രളയാനന്തര പുനർജ്ജനി പച്ചക്കറി തൈ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അടുത്തവർഷം സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ആഗ്രോ സെന്ററുകൾ തുടങ്ങുമെന്ന് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആധുനിക കൊയ്ത്തു മെതി യന്ത്രം ഉദ്ഘാടനം ചെയ്യവെ മന്ത്രി അറിയിച്ചു

ഹർത്താലിനെ തുടർന്നാണ് പരീക്ഷ മാറ്റിയത് ഇടുക്കി ഡാമിനോട് ചേർന്ന് കൂടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിന് മൂന്നുകോടി രൂപ ടൂറിസം വകുപ്പ് അനു വദിച്ചു

ടി

സിയുടെ അഞ്ചേക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുന്നത്

ഒഴിവാക്കാൻ എറണാകുളം ജില്ലയിൽ എക്സൈസ് വകുപ്പ് റെയ്ഡുകളും വാഹനപരിശോധനകളും ഊർജ്ജിതമാക്കി

പ്രശ്നമേഖലകളിൽ പൊലീസ് റവന്യൂ വനം ഡ്രഗ്സ് വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു

കൊല്ലം സിറ്റി പൊലീസിന്റെ വനിതാസെല്ലിൽ നിയമസഹായ കേന്ദ്രം തുറന്നു ജില്ലാ ലീഗൽ സർവ്വീസ് അതോറിറ്റിയും സിറ്റി പൊലീസും ചേർന്നാണ് സഹായകേന്ദ്രം ആരംഭിച്ചത്

കാർഷിക മേഖലയിൽ തൊഴിലാളികളുടെ കൂറവ് പരിഹരി ക്കാനും ഉത്പാദനം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് കൊല്ലം ജില്ലാ പഞ്ചാ യത്ത് മഹിളാ കിസാൻ സശാക്തീകരണ പരിപാടിക്ക് തുട്ടിക്കമിട്ടു ഇതിന്റെ ഭാഗമായി വനിതാ തൊഴിലാളികൾക്ക് ക്ലാസ് റൂം പരിശീലനവും കൃഷിയി ട പരിശീലനവും നൽകും

ബൈക്കപകടത്തിൽ പരിക്കേറ്റു പൊലീസ് ടെലി കമ്മ്യൂണിക്കേ ഷൻ എസ് ഐ കണ്ണൂർ വലിയന്നൂരിലെ സോജി ജോസഫ് മരണമടഞ്ഞു തിരുവനന്തപുരത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു കണ്ണൂർ പിലാത്തറയിൽ ഇന്നലെ വ്വൈകിട്ട് കെ എസ് ആർ ടി സി ബസും ബൈക്കും കൂട്ടിയിടിച്ച് എടക്കോംവില്ലയിലെ ടോം ചാക്കോ മരിച്ചു

പാലക്കാട് പുതുശ്ശേരി ദേശീയ പാതയിൽ ഇന്നലെ രാത്രി ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ആർ എസ് എസ് ജില്ലാ സംഘ്ചാലക് പുതുശ്ശേരി വടക്കേത്തറ എൻ മോഹൻകുമാറാണ് മരിച്ചത്